പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് ജമ്മു കശ്മീർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ട പോളിംഗ് ഇന്ന്

ഗജ ചുഴലിക്കാറ്റിനെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ്കേന്ദ്രസംഘം തമിഴ്നാട്ടിലെത്തി

ശബരിമലയിൽ ഭക്തർക്ക് നിയന്ത്രണങ്ങളില്ലെന്ന് മുഖ്യമന്ത്രി

സുരേന്ദ്രന്റെ മോചനം ആവശ്യപ്പെട്ട് ബിജെപിയുടെ കമ്മിഷണർ ഓഫീസ് മാർച്ച് ഇന്ന്

പ്രധാന കക്ഷികളായ കോൺഗ്രസും ബി

പിയും പ്രമുഖ നേതാക്കളെയെല്ലാം രംഗത്തിറക്കിയുള്ള പ്രചരണമാണ് നടത്തുന്നത് മധ്യപ്രദേശിലെ ചത്തർപൂർ മാണ്ഡസോർ ജില്ലകളിൽ ഇന്ന് നടക്കുന്ന യോഗങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ബി

പി പ്രസിഡ്ന്റ് മായാവതി എന്നിവരും വരും ദിവസങ്ങളിൽ വിവ്രിധ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ന്ടക്കുന്ന രാജസ്ഥാനിലും തെലങ്കാനയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമാണ്

കൂടുതൽ വിവരങ്ങളുമായി സുരേഷ്

ഉടൻ തന്നെ വോട്ടെണ്ണലും ആരംഭിക്കും

വോട്ടിംഗ് നടക്കുന്ന ഏഴു കേന്ദ്രങ്ങളിലും സുരക്ഷാസേനയേയും വിന്യസിച്ചിട്ടുണ്ട്

ജമ്മു ഡിവിഷനിൽ മാത്രം എട്ട് ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്

ചൈനയിലെ ദുജി യാങ്യാൻ നഗരത്തിൽ നടക്കുന്ന ചർച്ചയിൽ അതിർത്തിയിൽ സമാധാനം നിലനിർത്തുന്നതിന്റെ ആവശ്യകതയാണ് മുഖ്യ വിഷയം

ഏപ്രിലിൽ നടന്ന വുഹാൻ ഉച്ചകോടിയുടെ തീരുമാനങ്ങൾ നടപ്പാക്കിയത് സംബന്ധിച്ച വിലയിരുത്തിലും നടത്തും

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ദാനിയേൽ ഇ റിച്ചാർഡിന്റെ നേതൃത്വത്തിലുള്ള അഞ്ച് അംഗ സംഘമാണ് മൂന്നു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ എത്തിയത് സംഘം ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി കെ

ഗജ ചുഴലിക്കാറ്റ് ഏറ്റവും കൂടുതൽ ദുരിതം വിതച്ച തിരുച്ചിറപ്പള്ളിയും സംഘം സന്ദർശിക്കും

കേരളം പോലെ നിരന്തരം മഴ പെയ്യുന്ന സംസ്ഥാനങ്ങൾക്കാണ് സംവിധാനം കൂടുതലും പ്രയോജനപ്പെടുക സമുദ്രത്തിലുണ്ടാകുന്ന മർദ്ദ വ്യതിയാനം മനസിലാക്കി ചുഴലിക്കാറ്റിന്റെ സാധ്യത പ്രവചിക്കുന്ന മറ്റൊരു ഉപകരണങ്ങളുടെ രൂപീകരണ ഘട്ടത്തിലാണെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ കെ ജെരമേഷ് ന്യൂഡൽഹിയിൽ അറിയിച്ചു

പീപ്പിൾസ് ലിബറേഷ്ടൻ ഫ്രൺട് ഓഫ് ഇന്ത്യൻ തലവൻ വിജയ് ദാങ്ങാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് സിംദേഗ ജില്ലയിൽ സുരക്ഷാഭടൻമാർ വനമേഖലയിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായത് പോലീസ് സംഘം വളഞ്ഞതോടെ നക്സൽ സംഘം വെടിയുതിർത്തു ശക്തമായ ഏറ്റുമുട്ടലിനിടെയാണ് വിജയ്ദാങ്ങ് കൊല്ലപ്പെട്ടത്

ബീഹാറിലെ രാജ്ഗിറിലെ സി

ഐ മാവോയിസ്റ്റ് സംഘടനയുടെ മേഖലാ കമാന്ററായ രാജേഷ് രവിദാസ് ആണ് അറസ്റ്റിലായത് ദക്ഷിണ ഗുജറാത്തിലെ വൽസാദ് ജില്ലയിൽ തൊഴിലാളിയെന്ന വ്യാജേന പ്രവർത്തിക്കുമ്പോഴാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കൂടുതൽ ചോദ്യം ചെയ്യലിനായി രാജേഷിനെ ബീഹാർ പോലീസിലേക്ക് കൈമാറും

ഇസ്മെയിൽ ഖേൽ ജില്ലയിലുണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല വെള്ളിയാഴ്ചത്തെ നമസ്കാരത്തിനായി വിശ്വാസികൾ ആരാധനാലയത്തിൽ ഒത്തുകൂടിയപ്പോഴാണ് സ്ഫോടനമുണ്ടായത്

ഇരു രാജ്യങ്ങളും തമ്മിലുളള ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകളാണ് അദ്ദേഹത്തിന്റെ സന്ദർശന ലക്ഷ്യം

സുരേന്ദ്രന്റെ മോചനം ആവശ്യപ്പെട്ടു ബി ജെപി നാളെ ക്ലിഫ് ഹൌസിലേക്കു മാർച്ച് നടത്തും ഇന്ന് തൃശൂർ കോഴിക്കോട് പൊലീസ് കമ്മിഷണർമാരുടെ ഓഫീസുകളിലേക്കും മാർച്ച് നടത്തുമെന്ന് പാർട്ടി അറിയിച്ചിട്ടുണ്ട് സുരേന്ദ്രന്റെ അറസ്റ്റിനെതിരെ നിയമനടപടി സ്വീകരിച്ചു മുന്നോട്ടു പോകുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻ പിള്ള അറിയിച്ചു

യഥാർഥ ഭക്തർക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തടസവും ഉണ്ടായിട്ടില്ല എന്നാൽ ശബരിമലയിൽ കലാപമുണ്ടാക്കുന്നവർക്കും ഭക്തരെ തടയാൻ ശ്രമിക്കുന്നവർക്കും എതിരെയാണ് പോലീസ് നടപടി സ്വീകരിച്ചത് ശരിയായ ഭക്തരെ ആരെയും തടഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല അവരെ കലാപകാരികളിൽ നിന്ന് സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിച്ചതെന്നു ്ട് മുഖ്യമന്ത്രി പറഞ്ഞു

ഇന്ന് രാവിലെ പത്തിന് നടക്കുന്ന ചടങ്ങിൽ ആരോഗ്യമന്ത്രി കെ

ശൈലജ അധ്യക്ഷയാകും

അട്ടപ്പാടി പദ്ധതി പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനും ഏകോപിപ്പിക്കുന്നതിനുമായി ഗവൺമെന്റ് രൂപീകരിച്ച സമിതിയുടേതാണ് തീരുമാനം